ഇടതുമുന്നണി അധികാരം നിലനിർത്തി

ഡി

ഡി

നേമത്തെ ഏക സ്ട്രിറ്റിംഗ് സീറ്റും നഷ്ടപ്പെട്ട് ബി ജെ

രാഷ്ട്രീയ ചരിത്രം തിരുത്തി കേര്ള്ം വിധിയെഴുതിയതായി മുഖ്യമീന്തി ് പിണറായി വിജയൻ ജനവിധി മാനിക്കുന്നതായി രൂമേശ് ചെന്നിത്തല ധ്രൂവീകരണമുണ്ടായത്തായി കെ സുരേന്ദ്രൻ

ഭൂരിപക്ഷവുമായി ക്ക് കെ ശൈലജ ധർമടത്ത് പിണറായി വിജയന് മികച്ച വിജയം രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഭൂരിപക്ഷം കുറഞ്ഞു

വമ്പൻമാർക്ക് അടിപതറി പാലായിൽ ജോസ് കെ മാണിയെ അട്ടിമറിച്ച് മാണി സി കാപ്പൻ നേമത്ത് കുമ്മനം രണ്ടാമത് മഞ്ചേശ്വരത്തും കോന്നിയിലും കെ സുരേന്ദ്രൻ മൂന്നാമത്

എഫ് അധികാരം നിലനിർത്തി

കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കാലാവധി പൂർത്തിയാക്കിയശേഷം തിരഞ്ഞെടുപ്പിലൂടെ ഒരു മുന്നണി തുടർച്ചയായി അധികാരത്തിലെത്തുന്നത്

ഡി

എറണാകുളു വയനാട് മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് യു ഡി

നില്പിലെ സീറ്റായ നേമം നഷ്ടമായ എൻ

എക്സിറ്റ് പോളുകളും പ്രീ പ്പോൾ സർവേകളും അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന വിധിഉയഴുത്താണ് ഉണ്ടായത്

ജെ പിക്ക് ഒരു സീറ്റും പി

ജോർജിന് ഒരു സീറ്റുമാണ് മുൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് മുഖ്യമന്ത്രി ഇൻഡ്രോ അഞ്ചു വർഷത്തെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ് ജനവിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾ സർക്കാരിനെ അംഗീകരിച്ചതിനുള്ള തെളിവാണിതെന്നും നടന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടമാണെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് ആഘോഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലെന്നും കോവിഡിന്റെ സാഹചര്യം അതീവ ഗുരുതരമെന്നും മുഖൃമന്ത്രി പറഞ്ഞു

പരാജയ കാരണം യുഡിഎഫ് യോഗം ചേർന്ന് വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

സുരേന്ദ്രൻ

ജെ പി യിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു

ഡി എഫ് സ്ഥാനാർ ത്ഥി വി ശിവൻകുട്ടി ഇവിടെ വിജയം നേടിയത് വോട്ടെണ്ണൽ സമയത്ത് പകുതിയിലേറെ നേരവും എൻ

എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ലീഡ് ചെയ്തെങ്കിലും പിന്നീട് എൽ

എഫ് വിജയം നേടുകയായിരുന്നു

പി തലസ്ഥാനത്ത് കടുത്ത മൽസരം ് നടന്ന കഴക്കൂട്ടത്ത് എൽ

എഫിലെ സിറ്റിംഗ് എം

എതിർ സ്ഥാനാർത്ഥി ബി ജെ

ഡി എഫിന്റെ എസ് എസ്ട് ലാലീന് മൂന്നാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ

കുണ്ടറയിൽ സിറ്റിംഗ് എം

ഡി എഫിലെ പി സി വിഷ്ണുനാഥ് പരാജയപ്പെടുത്തിയത്

ഡി

ശക്തമായ ത്രികോണ മൽസരം നടന്ന് കോ ന്നിയിൽ സിറ്റിംഗ് എംഎൽഎ കെ

സുരേന്ദ്രൻ ഇവിടെ മൂന്നാം സ്ഥാനത്താണ് തിരുവല്ലയിൽ എൽ

എഫിന്റെ സിറ്റിംഗ് എം എൽഎ കൂടിയായ മാത്യു ടി തോമസ് റാന്നിയിൽ കേരള കോൺഗ്രസ് എമ്മിലെ പ്രമോദ് നാരായൺ ആറൻമുളയിൽ എൽ ഡി എഫിലെ സിറ്റിംഗ് എം

എ വീണ ജോർജ് അടൂരിൽ സിപിഐയിലെ ചിറ്റയം ഗോപകുമാർ എന്നിവരും നിയമസഭാംഗമായി തെരഞ്ഞെടു ക്കപ്പെട്ടു

ഡി എഫിനും

സജിലാലിനെ പരാജയിപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഞങ്ങളുടെ പ്രതിനിധി ആർ രവികുമാർ ചേരുന്നു

ഡി എഫിന് ഒപ്പം നിന്ന കേരളാ കോൺഗ്രസ് എം ജോസ് വിഭാഗം മൂന്നിടത്തും കോൺഗ്രസ് രണ്ട് സീറ്റിലും വിജയിച്ചു പാലായിൽ ജോസ് ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ ശക്തമായ പോരാട്ടത്തിന് ഒടുവിൽ എൻ സി പി മുൻ നേതാവും യു ഡി

ഡി

ഡി

ഡി

ഡി

പെരിന്തൽമണ്ണ കെ

മുസ്തഫ നിലമ്പൂർ പി

അൻവർ തവനൂർ കെ

അബ്ദുൾ റഫ്മാൻ എന്നിവരാണ് എൽ

എഫിനായി വിജയം നേടിയത്

ഡി

ഡി

ഡി എഫ് സ്ഥാനാർത്ഥികളും ജയിച്ചു

രമ കൊടുവള്ളിയിൽ മുസ് ലീംലീഗിന്റെ എം

മുനീർ എന്നിവരാണ് യു ഡി

കുറ്റ്യാടി കെ പി കുഞ്ഞമ്മദ് കുട്ടി നാദാപുരം ഇ

വിജയൻ കൊയിലാണ്ടി കാനത്തിൽ ജമീല പേരാമ്പ്ര ടി

രാമകൃഷ്ണൻ ബാലുശ്ശേരി കെ

ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്തതോടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പാലക്കാട് മണ്ഡലം ഉൾപ്പെടുന്ന ജില്ല ഇത്തവണയും ഇടതു പക്ഷത്തോടൊപ്പം നിന്നു

ഡി എഫിനാണ്

പാലക്കാട്ട് തുടക്കം മുതൽ മുന്നേറിയ ബി ജെ

ഡി എഫിന്റെ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത്

ഡി

കാസർകോട് കേരളത്തിന്റെ വടക്കേയറ്റത്തെ ജില്ലയിൽ ശ്രദ്ധേയ പോരാട്ടം നടന്ന മഞ്ചേശ്വരത്ത് യു ഡി

ജെ പിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ്

ഡി എഫ് സമഗ്രാധിപത്യം നേടുന്ന കാഴ്ച യാണുണ്ടായത്

ഡി എഫ് സ്ഥാനാർത്ഥികളും ജയിച്ചു

പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന പുതുച്ചേരിയിലും ബി ജെ

ജെ